സ്ഥിരീകരിച്ചു

ഊർജ്ജിതമായി

കോവിഡ് ബാധിതർക്ക് തപ്പാൽ വോട്ട് ന് അനുവദിക്കുന്നതിനൂള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയാറാക്കും

പെരുമാറിയ ചെറുപുഴ സർക്കിൾ ഇൻസ്പെക്ടറെ തീവ്രപരിശീലനത്തിന് അയച്ചു

സ്ഥിരീകരിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ

ഏറ്റവും ്കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലും കുറവ് സ്ക്യാനാർത്ഥികൾ വയനാട് ജില്ലയിലുമാണ് ട്രാൻസ്ജെന്റർ വിഭാഗ്ഗത്തിലെ ഏക സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത് കൃഷ്ണികൃഷ്ണ സ്പെഷ്യൽ തപാൽ വോട്ട് ആദ്യഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും കാറന്റീനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയ്യാറാക്കു മെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

മറ്റ് ജില്ലകളിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും ഡിസംബർ എട്ടിന് നടക്കുന്ന ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി് ജില്ലകളിലാണ് നടക്കുന്നത്

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഈ ആയുധങ്ങൾ പെരുമാറ്റചട്ടം അവസാനിക്കും വരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനും ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ല കളക്ടർ അറിയിച്ചു

ഭരണ സമിതിയുടെ പ്രസിഡന്റായി ഗ്ലോപീ കോട്ടമുറിയ്ക്കലും വൈസ് പ്രസിഡന്റായി എം

കേരള ബാങ്ക് രൂപീകരിച്ച ശേഷ്ടം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സമിതി അ്ധ്രികാരത്തിലെത്തിയത്

വിനീഷ് കുമാറിനെ കെഎപി നാലാം ബറ്റാലിയനിലേക്ക് തീവ്ര പരിശീലനത്തിന് അയച്ചു

അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്ക് ഹൈദരാബാദിലെ ഭാരത് ബയോടെക് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കുന്നത്

എക്സിക്യൂട്ടീവ് മജിസ്ട്ര്ട്ടിന്റെ് ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർക്കും ക്ഷേത്ര ജീവനക്കാരനുമാണ് കൊവിഡ് സ്ഥിരീകരിച്ചത്

സന്നിധാനത്ത് നടന്ന ഉന്നതതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്തർ സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ നിശ്ചിത സമയം ഇടവിട്ട് അണുനശീകരണം നടത്തുന്നുണ്ട്

നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് സംബന്ധിച്ച് കൃതൃമായി വിവരശേഖരണം നടത്തി വരുന്നുണ്ടെന്നും രിപ്പോർട്ടിൽ പറയുന്നു കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കമ്മീഷൻ സംസ്ഥാന പൊലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു

കമറുദീൻ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന എം സി

എൽ എ

കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ക്രൈംബ്രാഞ്ച് ഡി

സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മൂന്നു മണിക്കൂറോളം നീണ്ട ചോദൃം ചെയ്യൽ

ഡി എഫ് കൺവീനറും സി

എം സംസ്ഥാന സെക്രട്ടറിയുമായ എ

കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതോടെ യു

വിജയരാഘവൻ തിരുവന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

റെയിൽ പദ്ധതിക്ക് കേന്ദ്രസർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ് ഇതിനുള്ള സ്ഥലമെടുപ്പുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്രധനകാര്യമന്ത്രാലയം ഉപേക്ഷിച്ച പദ്ധതിയാണിതെന്നും പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹൃ ആഘാത പഠനമോ നടത്തിയിട്ടില്ലെന്നും ഇതെല്ലാം മറച്ചുവച്ചുകൊണ്ടാണ് സ്ഥലമെടുപ്പുമായി സംസ്ഥാന സർക്കാർ പ്രഹസനവുമായി മുന്നോട്ടു പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

എഫ്

ഡി എഫ് പരസ്പര സഹകരണം പ്രകടമായതായി ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ

ഈ തെരഞ്ഞെടുപ്പിൽ എൽ

എഫും ബി

പിയും നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും എ ടി

സ്വർണ്ണവില കുറഞ്ഞു